രാഷ്ട്രത്തോടായി ഇന്ന് പ്രസ്താ വന നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്

ഡസനിലേറെ റോക്കറ്റുകൾ ഉപയോഗിച്ച് എർബിലെയും ഐൻ അൽ അസദിലെയും വ്യോമതാവളങ്ങളിലായിരുന്നു ആക്രമണമെന്ന് പെൻറഗൺ സ്ഥിരീകരിച്ചു വൈറ്റ് ഹൌസ് സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്നും ദേശീയ സുരക്ഷാ സംഘവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വൈറ്റ്ഹൌസ് വക്താവ് സ്റ്റെഫാനി ഗ്രഷാം അറിയിച്ചു ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന് പ്രതികാരമായാണ് ആക്രമണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു

എല്ലാം നന്നായി പോകുന്നുവെന്നും ഇന്ന് രാഷ്ട്രത്തോടായി പ്രസ്താവന നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ എന്നിവരുമായും ദേശീയ സുരക്ഷാ സംഘവുമായും ചർച്ച നടത്തിയ ശേഷം ട്വിറ്ററിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തുവരികയാണെന്നും ട്രംപ് അറിയിച്ചു ഖത്തർ അമീർ ഷെയ്ക്ക് തമീം ബിൻ ഹമദ് അൽത്താനിയുമായും ഫോണിൽ സംസാരിച്ച ട്രംപ് അമേരിക്കയുമായി ശക്തമായ പങ്കാളിത്തം നിലനിർത്തുന്നതിന് അദ്ദേഹത്തോട് നന്ദിപറഞ്ഞതായി വൈറ്റ്ഹൌസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ഇറാഖ് ഇറാൻ സ്ഥിതിഗതികളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു രുട്ട്ട്ട്ടറും ഇറാഖിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു

എണ്ണവിലയിലെ വൻ വർദ്ധന ലോകത്തിന്റെ മറ്റുഭാഗങ്ങളിലേക്ക് ഇറാൻ ഉൾപ്പെടെ മേഖലകളിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട ഇറാഖിലേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി

ഇറാഖിൽ കഴിയുന്ന ഇന്ത്യക്കാരും ജാഗ്രത പാലിച്ച് ആഭ്യന്തര യാത്രകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ബാഗ്ദാദിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സാധാരണപോലെ പ്രവർത്തിച്ച് പൌരന്മാർക്ക് സേവനങ്ങൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട അമേരിക്കൻ വ്യോമാക്രമണത്തിൽ മരിച്ച ഇറാൻ റിപ്പബ്ലിക്കൻ ഖുദ്സ് ഗാർഡ് കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ഭൌതികശരീരം അദ്ദേഹത്തിൻറെ ജന്മസ്ഥലമായ കെർമാനിൽ ഖബറടക്കി

ആയിരക്കണക്കിന് ആളുകൾ ഖബറടക്കത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

നിക്ഷേപകർക്ക് അനുമതികളും അംഗീകാരങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ കാലതാമസമില്ലാതെ ലഭ്യമാക്കാനായി തുടങ്ങിയ ഇൻറർ ആക്ടീവ് പ്രോട്ടോക്കോൾ ആയ ഇൻവെസ്റ്റ് കേരള ഏകജാലക സംവിധാനമായി പുതുക്കി അവതരിപ്പിക്കും

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട മൂലധന ശക്തികളെകുറിച്ച് ആരോപണമുന്നയിച്ച സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിച്ച് ചേർത്ത് കൊണ്ടുവരുന്നവർ മൂലധന ശക്തികളാണോ എന്ന് സിപിഎം സെക്രട്ടറി വൃക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുമ്പ് എടുത്ത നയം തെറ്റായിരുന്നുവെങ്കിൽ അത് തിരുത്തി മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു

ആർ

സി ഉൾപ്പെടെ ബസുകളും ഓട്ടോറിക്ഷകളും ടാക്സികളും ഓടുന്നില്ല

എന്നാൽ ട്രെയിൻ ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല

എസ് ഒഴികെ പത്ത് ദേശീയ തൊഴിലാളി യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനകളും ബാങ്ക് ഇൻഷൂറൻസ് ബി

എൽ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്

സ്ഥകാര്യബസുകളും ടാക് സികളും ഓടുന്നില്ല കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളും മുടങ്ങിയിരിക്കുകയാണ് മറ്റ് ഡിപ്പോകളിൽ നിന്നും കോഴിക്കോട്ടെത്തിയ ദീർഘദൂര ബസുകൾ തിരിച്ചുപോയി തിരുവനന്തപുരം മാനന്തവാടി റൂട്ടുകളിലേക്ക് രാവിലെ ബസുകൾ സർവീസ് നടത്തി വ്യാപാരികൾ സമരത്തോട് വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജില്ലയില്ലെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായ്തെരുവിലുൾപ്പടെ കടകൾ തൂറന്നിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർവീസ് സംഘടനകൾ പണിമുടക്കിയതിനാൽ ഓഫിസുകളുടേയും സ് കൂളുകളുടേയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് പണിമുടക്കിയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി

കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്

എസ് ആർ

സി ഉൾപ്പെടെ ബസുകൾ സർവീസ് നടത്തുന്നില്ല

എം എസ് ഒഴികെ തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന സമരം വൃവസായ മേഖലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്

ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയത് വിനോദസഞ്ചാര മേഖലക്ക് തെല്ല് ആശ്വാസം നൽകുന്നുണ്ട് മെട്രോ സർവീസിനെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൻറെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി

പൊതുഗതാഗത വാണിജ്യ മേഖല നിശ്ചലമാണ് ഗവൺമെൻറ് കാര്യാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പ്രവർത്തനവും തടസ്സപ്പെട്ടു

മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല

യന്ത്രത്തകരാറായിരിക്കാം അപകട കാരണമെന്ന് ടെലിവിഷൻ റിപ്പോർട്ടിൽ പറയുന്നു

രാവിലെ സർവകലാശാല അസംബ്ലി ഹാളിൽ ഫ്രാൻസിലെ വി

എൻ സർവകലാശാല സാമൂഹിക ശാസ്ത്രവിഭാഗം ഡയറക്ടർ ഡോക്ടർ കപിൽരാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഇന്നലെ വൈകീട്ട് ബംഗാരം ദ്വീപിലെത്തിയ രാഷ്ട്രപതിയും പത്നിയും ഇന്നും ദ്വീപിൽ തുടരും

ഇന്നലെ കവരത്തിയിൽ ലക്ഷദ്വീപിലെ ആദ്യ സൂപ്പർ സ് പെഷ്യാലിറ്റി ആശുപത്രിക്ക് രാംനാഥ് കോവിന്ദ് തറക്കല്ലിട്ടു മൂന്നുദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നാളെ രാഷ്ട്രപതി കൊച്ചിയിലേക്ക് യാത്രതിരിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു

കച വെബ്സൈറ്റിൽ ആശയങ്ങൾ പങ്കുവെയ്ക്കാമെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ അറിയിച്ചു

മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം

രണ്ടാം മത്സരത്തിൽ ജയിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് അവസാന മത്സരം പരമ്പര സ്വന്തമാക്കാൻ നിർണായകമാണ് ഹൈദരബാദിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു

കലൂരിൽ നിന്ന് കാണാതായ പ്ലസ്ടു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തമിഴ് നാട്ടിലെ വാൽപ്പാറയിൽ കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി

ചൊവ്വാഴ്ചയാണ് വിദ്യാർതിനിയെ കാണാതായതായി ചാലക്കുടി പോലീസിൽ പരാതി ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർഥിനിയുടെ സുഹൃത്ത് നെട്ടൂർ സ്വദേശിർ സഫർ ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സൌഹൃദം തുടരാനാവില്ലെന്ന് പെൺകുട്ടി വൃക്തമാക്കിയതിന്റെ വൈരാഗൃമാണ് കൊലപാതകത്തിലേക്കു നയിച്ചതെന്ന് പൊലീസ് അറിയിച്ചു അട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് സമ്പൂർണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ സംബന്ധിച്ച് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് നിർദ്ദേശം നൽകി

ഭക്ഷണ മേശകളിൽ വിരിക്കുന്ന ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ വിരി ഉപയോഗിക്കണം പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്കും ഗ്ലാസുകൾക്കും പകരം ഗ്ലാസ് സിറാമിക് സ്റ്റീൽ നിർമ്മിത സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടിയ സ്വയം വിഘടിക്കുന്ന പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും ഉപയോഗിക്കാം ഇത് പൂർണമായും കമ്പോസ്റ്റാക്കാവുന്ന ഉത് പന്നമാണെന്ന് വിവിധ ഭാഷകളിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്